മൂന്ന് പ്രതികളെയും ്രറിമാൻഡ് ചെയ്തു

്ബത്തേരിയിൽ ഇന്ന് മഹാ ഐക്യദാർഢ്യ സമ്മേളനം മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഉച്ചയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ഇന്ന് ദുർഗ്ഗാഷ്ടമി

ദേശീയപാതയിലെ കുതിരാൻ തുരങ്കപാതയുടെ നിർമ്മാണ തടസ്സം പരിഹരിക്കാൻ അടിയന്തിര നടപ ടിയെടുക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി വി

ചുരുങ്ങിയ ദിവസങ്ങൾകൊണ്ടുതന്നെ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ പൊലീസിന് കഴിഞ്ഞ തായി അദ്ദേഹം അഭിനന്ദന കുറിപ്പിൽ പറഞ്ഞു അന്വേഷണ ത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരും സഹായിച്ച ശാസ്ത്രീയ അന്വേഷണ സംഘത്തിൽപ്പെട്ടവരും മികച്ച വൈദഗ്ദ്ധ്യമാണ് കാഴ്ചവെച്ചത്

സാംസ്കാരികമായും ബൌദ്ധികമായും മുന്നിലെന്ന് അഭിമാ നിക്കുന്ന കേരളത്തിൽതന്നെ ഇത്തരം കൊലപാതക പരമ്പ രയ്ക്ക് സാക്ഷ്യം വഹിച്ചത് ഏറെ ചിന്തിക്കാനും വക നൽകു ന്നതായി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അതിനിടെ കൊലപാതക പരമ്പരയിൽ റോയ് തോമസ് സയനൈഡ് ഉള്ളിൽചെന്ന് മരിച്ച കേസിൽ അറസ്റ്റിലായ മൂന്നുപേരെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ജോളി സയനൈഡ് എത്തിച്ച് നൽകാൻ സഹായിച്ച മാത്യു പ്രജുകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്

ഇതിന്റെ ഭാഗമായി ഇന്ന് ബത്തേരിയിൽ മഹാ ഐക്യദാർഢ്യ സമ്മേളനം സംഘ ടിപ്പിക്കും മന്ത്രി എ കെ ശശീന്ദ്രനും എം പിമാരായ കെ സു ധാകരൻ എളമരം കരീം സി

എം നേതാവ് ടി എൻ സീമ കേരള കോൺഗ്രസ് നേതാവ് പി

ജോസഫ് തുട ങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും സമരം ആരംഭി ച്ചത് മുതൽ ഐക്യദാർഢ്യവുമായി എത്തിയവരെ മഹാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറി യിച്ചു എല്ലാവരും ബത്തേരിയിലേക്ക് എല്ലാ വഴികളും ബത്തേരിയിലേക്ക് മുദ്രാവാകൃത്തോടെയാണ് സമ്മേളനം നടക്കുന്നത് ബത്തേരിയിലെ സമരത്തിന് കർണ്ണാടകത്തിൽനിന്നും തമി ഴ്നാട്ടിൽനിന്നും ഐക്യദാർഢ്യവുമായി ഒട്ടേറെപേർ എത്തി

ഗൂഡല്ലൂർ ഗാന്ധി മൈതാനത്തായിരുന്നു ഉപവാസം മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചി യിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും ജില്ലാ കലക്ടർ പൊളിക്കലിന്റെ ചുമതലക്കാരനായ സബ് കലക്ടർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ഫ്ളാറ്റു കൾ പൊളിക്കുന്ന സമയത്ത് സമീപത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നതടക്കം കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും

ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർമാർ ജോലിക്ക് എത്തിയ തിനെത്തുടർന്ന് ഇന്നലെ കൂടുതൽ സർവ്വീസുകൾ നടത്താ നായി സർവ്വീസുകൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സ്ഥിര നിയ മനം ഉടൻ നടത്താനാവില്ലെന്ന് ക്ടോർപ്പറ്റേഷൻ ചീഫ് മാനേ ജിംഗ് ഡയറക്ടർ എം പി ദിന്നേശ് വാർത്താക്കുറിപ്പിൽ അറി യിച്ചു ഇന്ന് ദുർഗ്ഗാഷ്ടമി തൊഴിലിടങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെയ്ക്കും നാളെ മഹാനവമിയ്ക്കുശേഷം വിജയദശമി ദിന മായ ചൊവ്വാഴ്ച വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്ര ങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും എഴുത്തിനിരുത്ത് രാവിലെ ആരംഭിക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കോട്ടയം പനച്ചി ക്കാട് തൃശൂർ തിരുവുള്ളക്കാവ് ക്ഷേത്രങ്ങളിലും സരസ്വതി സാന്നിധൃം കൽപ്പിക്കുന്ന ക്ഷേത്രങ്ങളിലും എഴുത്തിനിരു ത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജനങ്ങൾക്ക് ദുർഗ്ഗാപൂജ ആശംസകൾ നേർന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയ ത്തിന്റെ പ്രതീകമാണ് ഈ ഉത്സവ വേളയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സത്യവും നീതിയും അന്തിമമായി വിജയിക്കുമെന്ന സന്ദേശമാണ് ദുർഗ്ഗാപൂജ സമൂഹത്തിന് നൽകുന്നതെന്നും രാഷ്ട്രപതി അറിയിച്ചു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് കൊച്ചി യിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും

ബി എസ് ഇ അത്ലറ്റിക് മീറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്യും തുടർന്ന് സ്ഥകാര്യ വാർത്താ ചാനലിന്റെ നഴ്സിംഗ് എക്സലൻസ് അവാർഡ്ദാന പരിപാടിയിലും മുരളീധരൻ പങ്കെടുക്കും വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയ പാതയിലെ കുതിരാൻ തുരങ്കപാതയുടെ നിർമ്മാണ തടസ്സം പരിഹരിക്കുന്നതിന് അടിയന്തിര നടപടികളെടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു നിർമ്മാണത്തിൽ കാലതാമസം നേരിടുന്നത് എന്തുകൊണ്ടാണെന്നും എവിടെയാണ് പ്രശ്നങ്ങളെന്നും കണ്ടെത്തി നടപടിയെടുക്കും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും മുരളീധ രൻ അറിയിച്ചു

പ്രവാസി ഇന്ത്യ ക്കാരുടെ അനന്തര തലമുറയ്ക്ക് മാതൃ രാജ്യവുമായി ബന്ധം നിലനിർത്താനും അടുത്തറിയാനും വിവിധ മേഖലകളിലെ പുരോഗതി നേരിട്ട് അറിയാനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ദക്ഷിണാഫ്രിക്കക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക് വിജയ പ്രതീക്ഷ

ലോക ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഒളിം പ്യൻ പി വി സിന്ധുവിനെ കായിക യുവജനകാര്യ വകുപ്പും കേരള ഒളിംപിക് അസോസിയേഷനും ബുധനാഴ്ച തിരുവ നന്തപുരത്ത് ആദരിക്കും

പാലായിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ മറ്റൊരു കുട്ടിയെറിഞ്ഞ ഹാമർ തലയിൽവീണ് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു തലച്ചോറിൽ ആഴത്തിൽ മുറിവേറ്റ അഫീൽ ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാ ഗത്തിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത് അപകടത്തെത്തു ടർന്ന് മീറ്റ് നിർത്തിവെച്ചിരുന്നു അപകടം അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ കായിക വകുപ്പ് നിയോഗിച്ചു അടൂർ ഗോപാലകൃഷ്ണനടക്കം സാംസ്കാരിക പ്രവർത്ത കരെ തെറ്റിദ്ധരിപ്പിച്ച് പ്രധാനമന്ത്രിക്കെതിരെ കത്തെഴുതി ക്കാൻ പാകത്തിൽ കേരളത്തിലെ ധൈഷണിക രംഗം അധഃ പ്പതിച്ച തായി കേന്ദ്ര സ ഹ മന്ത്രി വി

കൊച്ചിയിൽ കേരളത്തിലെ ആദ്യ ആർ എസ് എസ് പ്രാന്തപ്രചാരകൻ ഭാസ്കർ റാവു വിന്റെ ജന്മശതാബ്ദി സമാപനത്തിൽ മുഖ്യപ്രഭാഷണം നട ത്തുകയായിരുന്നു മുരളീധരൻ കേരളാ ഫിഷറീസ് യൂണിവേഴ്സിറ്റി കൊല്ലം കുണ്ടറയിൽ തുടങ്ങുന്ന പഠന പരിശീലന ഗ്വേഷണ കേന്ദ്രത്തിൽ അടുത്ത അധ്യയനവർഷം ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് മന്ത്രി ജെ

ടെക്നോ പാർക്കിന് സമീപം കേന്ദ്രത്തിന് അനുവദിച്ച പത്തേക്കർ ഭൂമി സന്ദർശിച്ച ശേഷ മാണ് മന്ത്രി ഇക്കാര്യമറിയിച്ചത് കോഴിക്കോട് താമരശ്ശേരിയിൽ മന്ത്രി കെ

പരാതികളിൽ നടപടി പൂർത്തിയാക്കി ഒരു മാസത്തിനകം കക്ഷികളെ നേരിട്ട് അറിയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഗുണനിലവാരത്തോടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യ മാക്കു കയാണ് ഗവൺമെന്റ് നയ മെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാ വുന്ന സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകി വീടും ഭൂമിയും കെട്ടിടങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് മികച്ച നഷ്ടപരിഹാര പാക്കേജാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് മന്ത്രി കണ്ണൂരിൽ അവലോകന യോഗ ത്തിൽ പറഞ്ഞു

കേരഫെഡിനും നാളികേര വിക സന ബോർഡിനും കീഴിലെ സംഘങ്ങൾ വഴിയാണ് സംഭ രണം

യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് കോതമം ഗലത്ത് രണ്ടാം കൂനൻകുരിശ് സത്യം നടത്തും വൈകിട്ട് മൂന്നിന് മാർത്തോമാ ചെറിയ പള്ളിക്ക് മുമ്പിലെ കൽക്കുരി ശിന് മുന്നിലാണ് വിശ്വാസികളുടെ പ്രതിജ്ഞു യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലെ പള്ളികളിൽ രാവിലെ കുർബാനക്കിടെ രണ്ടാം കൂനൻ കുരിശ് സത്യവുമായി ബന്ധ പ്പെട്ട മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കൽപ്പന വായിക്കും

അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതിയുടെ സന്ദർശനത്തെ തുടർന്നാണ് തീരുമാനം

പാലക്കാട് ജില്ലയിൽ പരമ്പരാഗതമായി ആനകളെ എഴുന്നള്ളിക്കുന്ന ഉത്സവ കമ്മിറ്റിക്കാർ അതത് മാസം അഞ്ചിനകം കലക്ടറേറ്റിലോ ഒലവക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിലോ അനുമതിക്ക് അപേക്ഷിക്കണമെന്ന് ജില്ലാ കലക്ടർ ഡി ബാലമുരളി ആവശ്യപ്പെട്ടു